പെരിയ കൊലക്കേസിലെ മുഖ്യപ്രതി പീതാംബരൻ ക്യോടതിയിൽ കുറ്റം നിഷേധിച്ചു തിരുവനന്തപുരം അടക്കം രാജ്യത്തെ അഞ്ച് വിമാനത്താവളങ്ങ ളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചേക്കും

ൾ ൽ ൾ പെരിയ ഇരട്ട കൊലപാതകത്തെ തുടർന്ന് നില നിൽക്കുന്ന സംഘർഷാവസ്ഥക്ക് പരിഹാരം കാണാൻ കാസർകോട്ട് ഇന്ന് സർവ കക്ഷി സമാധാന യോഗം ചേരും

മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ സാന്നിധൃത്തിൽ ചേരുന്ന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടേയും പ്രതിനിധികൾ പങ്കെ ടുക്കും പെരിയ കൊലക്കേസിലെ മുഖ്യപ്രതി പീതാംബരൻ കോടതി യിൽ കുറ്റം നിഷേധിച്ചു ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പൊലീസ് മർദിച്ച് കുറ്റം സമ്മതിക്കുക യായിരുന്നുവെന്ന് പീതാംബരൻ മൊഴി നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും പീതാംബരൻ കോടതിയോട് പറഞ്ഞു

പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണം സിബിഐ യെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മറ്റി ജില്ലാ പൊലീസ് മേധാവി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് കൈ കഴുകാമെന്ന് ആരും കരുതേണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു തിരുവനന്തപുരം അടക്കം രാജ്യത്തെ അഞ്ച് വിമാനത്താവളങ്ങ ളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചേക്കും

തിരുവനന്തപുരം വിമാന ത്താവളത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റും ലേലത്തിൽ പങ്കെ ടുത്തിരുന്നു എന്നാൽ അതിലും ഉയർന്ന തുകയാണ് അദാനി വാഗ്ദാനം ചെയ്തത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടായേക്കുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു സംസ്ഥാനത്ത് നാല് ഘട്ടങ്ങളായി നടപ്പാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിലെ അൻപതിനായിരത്തിൽ പരം വീടു കൾ പൂർത്തിയായതായി മന്ത്രി എ

വീടുകളുടെ നിർമ്മാണത്തിന് ഗവൺമെന്റ് ആയിരം കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നും മന്ത്രി ഇടുക്കി അടിമാലിയിൽ പറഞ്ഞു

സി മൊയ്തീൻ

പദ്ധതിക്ക് ആവശ്യമായ തുക കേന്ദ്രവും സംസ്ഥാനവും തുല്യ മായി പങ്കുവെക്കണമെന്ന കേന്ദ്ര നിർദേശത്തെ തുടർന്നാണ് നടപ ടി എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളുടെ ഗതാഗത വികസന ത്തിനും പുരോഗതിക്കും ശബരി റെയിൽപാത അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട് ശബരിമല ഭരണങ്ങ്യാനം തീർത്ഥാ ടന കേന്ദ്രങ്ങളിലേക്ക് യാത്രാ സൌകര്യം മെച്ചപ്പെടുത്താൻ പാത പ്രയോജനപ്പെടും കിഫ്ബി വഴിയാണ് ഗവൺമെന്റ് ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നത് ശബരിമല വിമാനത്താവള നിർമ്മാണം ഗവൺമെന്റിന്റെ പരിഗ ണനയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ആല പ്പുഴ ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ചെങ്ങന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടംകുളത്ത് നിന്ന് വൈദ്യുതി ലഭ്യ മാക്കാൻ പവർഗ്രിഡ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതി അവസാന ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് തിരുവനന്തപുരം സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത് ജില്ലാതലത്തിൽ പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം തത്സമയ സംപ്രേക്ഷണത്തിലൂടെ മറ്റ് ജില്ലകളിലും നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ കൊല്ലത്ത് വിവിധ ന്ന പരിപാടികളിൽ പങ്കെടുക്കും പുനരുദ്ധാരണത്തിന് തിരഞ്ഞെടുത്ത സ്വകാര്യ കശുവണ്ടി വൃവസായങ്ങളുടെ പുനർവായ്പാ വിതരണത്തിന്റെ ആദ്യഘട്ടം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

എം എ

ശബരിമല യുവതീ പ്രവേശന വിഷയം വോട്ടുബാങ്കാക്കുന്ന രാഷ്ട്രീയത്തിന് കൂട്ട് നിൽക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് കെപി സിസി പ്രസിഡന്റ് മൂല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജനമഹായാ ത്രക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം എൽഡിഎഫിനും ബിജെപിക്കും ശബ രിമല വോട്ടുബാങ്ക് രാഷട്രീയമാണ് നാനാജാതി മതസ്ഥരുടെ അഭയ കേന്ദ്രമായ ശബരിമലയെ കോൺഗ്രസ് ഒരിക്കലും രാഷ്ട്രീയമായി കാണില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കർഷകരെ സഹായിക്കാനെന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റ് നട പ്പാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ പദ്ധതി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന തട്ടിപ്പാണെന്ന് സിപിഐ സംസ്ഥാന സെക്ര ട്ടറി കാനം രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി എൽഡിഎഫ് കേരള സംര ക്ഷണ ജാഥക്ക് എടപ്പാൾ വളാഞ്ചേരി മലപ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു കാനം മല പ്പുറം ജില്ലയിൽ പര്യടനം ഇന്ന് പൂർത്തിയാകും അയോദ്ധ്യാ ഭൂമി ഉടമസ്ഥാവകാശ കേസ് ഇന്ന് സുപ്രീം കോട തിയുടം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസ് യു

ലളിതിനെ ഉൾപ്പെ ടുത്തിയതിനെതിരെ സുന്നീ വഖഫ് ബോർഡ് പരാതിപ്പെട്ടതിനെ തുടർന്ന് പുനസംഘടിപ്പിച്ച ബഞ്ചാണ് വാദം കേൾക്കുന്നത്

നാളെ ജമ്മു കശ്മീരിനെയും മറ്റന്നാൾ നാഗാലാന്റിനേയും കേരളം നേരിടും മാർച്ച് മൂന്നിന് ജാർഖണ്ഡുമായും ഏറ്റുമുട്ടും

അവസാന മത്സരം നാളെയാണ് ചലച്ചിത്ര നടനും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി യുമായിരുന്ന എം

ആറിന്റെ സ്മൃതി മന്ദിരം ഇന്ന് രാവിലെ ഗവർണർ പി സദാശിവം തുറന്നു നൽകും ജന്മനാടായ പാലക്കാട് വടവന്നൂരിലാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്മൃതി മന്ദിരം നിർമ്മിച്ചത് ചടങ്ങിൽ മന്ത്രിമാരായ എ

ബാലനും കെ കൃഷ്ണന്കുട്ടിയും പങ്കെടുക്കും സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി വൻകിട സംരംഭങ്ങൾ തൂടങ്ങുമെന്ന് വൃവസായ മന്ത്രി ഇ

ജയരാജൻ പറഞ്ഞു ചവറ കെ എം

എൽ കമ്പനി വികസിപ്പിച്ച പുതിയ രണ്ട് ഉത്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

എല്ലിൽ ഗവേഷണ വിഭാഗം ശക്തിപ്പെടുത്തി ഉത്പന്ന വൈവിധൃം സാധ്യമാക്കുമെന്നും കരിമണൽ ശേഖരണം ഊൌർജ്ജിതപ്പെടുത്തി മേഖലയിലെ സ്ഥാപനങ്ങളുടെ ഉദ്പാദനവർധനവ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സപ്ലൈകോയുടെ ഗൃഹോപകരണ വിപണന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോട്ടയത്ത് നടത്തും

കോട്ടയം ഹൈപ്പർ മാർക്കറ്റിൽ മന്ത്രി പി

വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മറ്റു വിൽപനശാലകളിലും മന്ത്രി പദ്ധതിക്കു തുടക്കം കുറിക്കും പതിറ്റാണ്ടുകളായി ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് ഭൂമി പതിച്ച് നൽകുമ്പോൾ മാതാപിതാക്കളുടെ ഭൂസ്വത്ത് പരിഗണക്കേണ്ട തില്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ദൂർവ്യാഖ്യാനം ചെയ്യാതെ അർഹരായവർക്ക് പട്ടയം നൽകാൻ പ്രത്യേക പരിഗണന നൽകണ മെന്നും മന്ത്രി നിർദേശിച്ചു

ചന്ദ്രശേഖരൻ പറഞ്ഞു കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച പ്രത്യേക അവലോകന യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീകൾക്ക് തുല്യനീതിയും സമത്വവും ഉറപ്പുവരുത്തുകയാണ് ഗവർണമെന്റ് ലക്ഷ്യമെന്നും ഇതിനായി സംസ്ഥാനതലതത്തിൽ വിവിധപരിപാടികൾ ഗവൺമെന്റ് നടപ്പാക്കി വരികയാണെന്നും മന്ത്രി എ

ബാലൻ പറഞ്ഞു വനിതാ കമ്മീഷൻ പാലക്കാട്ട് സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ നിയമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇന്നും നാളെയും ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ്

രാവിലെ ഒമ്പതിന് രക്തസാക്ഷി അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഉദ്ഘാടനം ചെയ്യും മാർച്ച് നാലുവരെയാണ് കലോത്സവം ബഹുജന പങ്കാളിത്തത്തോടെ വന സംരക്ഷണം നടപ്പാക്കാനാ ണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ

കോഴിക്കോട് പശുക്കടവ് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശ്രീനാരായണഗുരുവിന്റേയും ചട്ടമ്പിസ്വാമിയുടേയും സംഗമ സ്ഥാനം എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം നേടിയ അണിയൂർ ശ്രീദൂർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തീർത്ഥാട്ടക സൌകര്യ കേന്ദ്രം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് കോടി രൂപ ചെല വിലാണ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയത് എഴുത്ത് ലോട്ടറി വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി എടു ക്കുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു ഇത്തരം ലോട്ടറി വിൽക്കുന്നവരുടെ ഏജൻസി റദ്ദാക്കും